സമർപ്പിച്ചു

വർദ്ധിപ്പിക്കാൻ കോവിഡ് കാലം പ്പഴിച്ചുയാരുക്കിയതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമ്നർ

വർദ്ധിപ്പിക്കാനൊരുങ്ങി ബ്രിക്സ് അംഗ രാജ്യങ്ങൾ

ജെയ്ഷെ മുഹമ്മദ് തലവൻ മൌലാന മസൂദ് അസർ സഹോദരങ്ങളായ അബ്ദുൾ റാഫ് അസ്ഗർ അമർ അൽവി ഉമർ ഫാറൂഖ് എന്നിവരാണ് മുഖ്യപ്രതികൾ പുൽവാമയിൽ നിന്നും അറസ്റ്റിലായവരും പ്രതികളാണ് ഏഴുപേശ്ല കൂടി എൻ ഐ എ ഈ കേസിൽ അറസ്റ്റു ചെയ്തിരുന്നു

കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി ഓൺലൈനായി സംഘടിപ്പിച്ച വൃവസായ പ്രമുഖരുടെ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ധനമന്ത്രി

സിനിമാശാലകൾ ഭക്ഷണശാലകൾ മാളുകൾ എന്നിവയെ ബാധിച്ചിട്ടുണ്ട്

വിശദാശങ്ങളുമായി ദേവിപ്രിയ വോയിസ് പൊതു മേഖലാ സ്ഥാപനങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾ അതിവേഗം വിട്ടു നൽകാൻ ഇതുവഴി സാധ്യമാകുമെന്ന് കേന്ദ്ര പരോക്ഷ നികുതി കസ്റ്റംസ് ബോർഡ് അറിയിച്ചു

ഇറക്കുമതി നടത്തുന്നതിന്റെ രേഖകൾ സൂക്ഷിക്കുന്നതിന് ആഭ്യന്തര നിയന്ത്രണങ്ങളോടെ നിയമപരമായ കാര്യങ്ങൾ പാലിക്കാനും ഇതുവഴി കഴിഞ്ഞു നിലവിൽ നടപ്പാക്കി വരുന്ന നികുതി നിർമ്മാണ മേഖലയിലെ പരിഷ്ക്കാരങ്ങളുടെ ഭാഗമാണ് കസ്റ്റംസ് തീരുവ അടക്കാൻ അനുവദിക്കുന്ന നീട്ടിയ സമയ പരിധി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇതിൽ ഒന്നര ലക്ഷത്തോളം പേരാണ് മരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ എല്ലാ ജില്ലകളിലും ഒരു ഡ്രൈവിംഗ് സ്കൂൾ വീതം തുടങ്ങാൻ ലക്ഷ്യമിടുന്നതായും ശ്രീ

ഉയർന്ന മൂല്യമുള്ള ഈ നോട്ടുകളുടെ ക്രയവിക്രയം കുറഞ്ഞു വരിയാണെന്ന് വാർഷിക റിപ്പോർട്ടിൽ ആർ ബി ഐ വ്യക്തമാക്കി

ഇത് നാലാം തവണയാണ് രാജ്യത്തിന്റെ വ്യോമയാന കമ്പനിയുടെ ഓഹരി വിൽപ്പനയുടെ തീയതി ദീർഘിപ്പിച്ചത്

സഭയിൽ സാമൂഹിക അകലം ഉൾപ്പെടെയുളള സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്

ലോറ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ എണ്ണക്കമ്പനികൾ ഗൾഫ് ഓഫ് മെക്സിക്കോ തീരത്തെ എണ്ണ വിപണികൾ അടച്ചതോടെയാണ് വില വർദ്ധന

സംസ്ഥാനത്ത് കോവിഡ് പരിശോധനകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്

പതിറ്റാണ്ടുകളായി ഈ രോഗത്തിനെതിരെ നടത്തിവരുന്ന പ്രതിരോധ പ്രവർത്തനങ്ങളുടെ പരിശ്രമഫലമാണിത് കഴിഞ്ഞ നാല് വർഷമായി ഒരാൾക്കു പോലും പിള്ളവാതം റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത സാഹചരൃത്തിലാണ് ആഫ്രിക്കയ്ക്ക് ഈ നേട്ടം ആഫ്രിക്ക വസൂരി നിർമ്മാർജ്ജനം ചെയ്തിരുന്നു

ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളാണ് ബ്രിക്സ് അംഗങ്ങൾ അടുത്ത മാസം ആദ്യം ചേരുന്ന വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിനു മുന്നോടിയായാണ് യോഗം ചേർന്നത് ചൈനീസ് നിർമ്മിത വാവേ ഫോണിന് അമേരിക്കയടക്കമുള്ള രാജൃങ്ങളിൽ നിന്നുള്ള വിലക്കിന്റെ പശ്ചാത്തലത്തിൽ അംഗ രാജ്യങ്ങളിൽ ഫൈവ് ജി സാങ്കേതിക വിദ്യയുടെ പ്രചാരണത്തിനാണ് ചൈനയുടെ ശ്രമം